നടപടി സുപ്രീംകോടതി വിധിയ്ക്ക് ശേഷമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേ ക്കർ ു സിഡ്നിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ചരിത്രനേട്ടം പരമ്പര ഇന്ത്യ സ്വന്തമാക്കി നാളത്തെയും മറ്റന്നാളത്തെയും ദേശീയ പണിമുട ക്കിൽ കടകൾ തുറക്കുന്നവർക്ക് എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയതെന്ന് ഇന്ന് ഉച്ചയ്ക്ക് അറിയിക്കാൻ ഹൈക്കോടതി സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു കടകൾ തുറക്കുന്ന വർക്ക് ആവശൃമായ സുരക്ഷ നൽകുമെന്നും ഹർത്താൽ നേരിടാൻ സ മഗ്ര പദ്ധതി തയ്യാറാക്കു മെന്നും ഗവൺമെന്റ് അറിയിച്ചപ്പോഴാണ് ഇക്കാ രൃത്തിൽ കോടതി കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ടത് ഹർത്താലിനെതിരെ കേരള ചേംമ്പർ ഓഫ് കൊമേഴസും മലയാളവേദിയും നല്കിയ ഹർജി പരിഗ ണിക്കുകയായിരുന്നു കോടതി

ഹർത്താലിന് ഏഴ് ദിവസം മുൻകൂട്ടി നോട്ടീസ് നൽകണമെന്ന വ്യവസ്ഥ കൊണ്ടുവരണമെന്നും കോടതി ഗവൺമെന്റിനോട് ആവ ശൃപ്പെട്ടു പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ മറ്റുള്ളവരെ ഇക്കാര്യത്തിൽ നിർബന്ധിക്കരു ത് നാളത്തെയും മറ്റന്നാളത്തെയും ദേശീയ പണിമുടക്ക് ഹർത്താലായി മാറിയേക്കുമെന്ന് ഹർജിയിൽ ചേമ്പർ ഓഫ് കൊമേഴ്സ് ആശങ്ക പ്രകടിപ്പിച്ചു സമരങ്ങളിലും പ്രതിഷേധങ്ങളിലും സ്വകാര്യസ്വത്ത് നശിപ്പിക്കുന്നവർ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് തുല്യ മാക്കി ഓർഡിനൻസ് കൊണ്ടുവരാൻ ഗവൺമെന്റ് തയ്യാ റെടുക്കുന്നു

വീടുകൾ പാർട്ടി ഓഫീസുകൾ കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രതിഷേധ ങ്ങളിലുണ്ടാകുന്ന കയ്യേറ്റം അവസാനിപ്പിക്കാനാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശ്യം വസ്തുവകകൾ നശിപ്പിക്കു ന്നവർക്ക് അഞ്ച് വർഷം വരെ തടവും സ്വത്ത് പിടിച്ചെ ടുക്കലും ഉൾപ്പെടെ നടപടികൾ ഓർഡിനൻസിൽ വ്യവസ്ഥ ചെയ്തേക്കും

കേന്ദ്ര സംസ്ഥാ ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ റോഡ് ഗതാഗതമേഖലയിലെ തൊഴിലാളികൾ സംഘടിത അസം ഘടിത തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കിൽ പങ്കെടുക്കും പണിമുടക്കിന്റെ ഭാഗമായി തൊഴിലാളികൾ ട്രെയിനു കൾ പിക്കറ്റ് ചെയ്യുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു സംസ്ഥാനത്തെ എല്ലാ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിൻ ഉപരോ ധിക്കുന്നതിനാൽ നാളെയും മറ്റന്നാളും യാത്ര ഒഴിവാക്കി പണിമുടക്കുമായി സഹകരിക്കണമെന്നും സംയുക്ത സമ രസമിതി അഭ്യർത്ഥിച്ചു മോട്ടോർവാഹന തൊഴിലാളി സംഘടനകൾ പണിമു ടക്കുന്നതിനാൽ പൊതുഗതാഗത സംവിധാനങ്ങളും ഓട്ടോ ടാക്സി സർവീസുകളും നിലയ്ക്കും എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ തടയില്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി പ്രസിഡന്റ് എളമരം കരീം പറഞ്ഞു

പത്രം പാൽവിതരണം ആശുപത്രികൾ വിനോദസഞ്ചാരകേന്ദ്രങ്ങൾ എന്നിവയെ ഒഴിവാക്കിയതായും സംയുക്ത ട്രേഡ് യൂണിയൻ അറി യിച്ചു

എസ്

അടക്കം ചെറുകിട വ്യാപാരികളെ ദ്രോഹി ക്കുന്ന നയങ്ങൾക്കെതിരെ നടക്കുന്ന പണിമുടക്കുമായി സഹകരിക്കണമെന്ന് സമരസമിതി വൃാപാരികളോട് അഭ്യർത്ഥിച്ചു എന്നാൽ പണിമുടക്കുദിവസങ്ങളിൽ കട തുറക്കുമെ ന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപനസമിതി കഴിഞ്ഞദിവസം കോഴിക്കോട്ട് അറിയിച്ചിരുന്നു വ്യാപാരി വ്യവസായി സമിതിയും കടകൾ തുറക്കുമെന്ന് അറിയി ച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തെ ദേശീയ പണിമുടക്കിൽ ശബരിമല സ്പെഷ്യൽ സർവീസുകൾ മുടങ്ങില്ലെന്ന് കെ എസ് ആർ ടി സി എം ഡി ടോമിൻ ജെ തച്ചങ്കരി അറി യിച്ചു പമ്പയിലേക്കും തിരിച്ചു ബസ്സുകളുണ്ടാകും സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിൽ നിന്നും ബസുകൾ നടത്തുമെന്ന് അദ്ദേഹം സർവീസ് തിരുവനന്തപുരത്ത് അറിയിച്ചു ചെങ്ങന്നൂർ കുമളി കോട്ടയംഎറണാകുളം ബസ്സ്റ്റേഷനുകളിലേക്കാണ് കൂടു തൽ സർവീ സു കൾ ് ഉണ്ടാവു കയെന്നും തച്ചങ്കരി വ്യക്തമാക്കി പൊതുപണിമുടക്ക് സംസ്ഥാനത്ത് ഹർത്താലാ കാതെ നോക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപനസ്മിതി സംസ്ഥാന പ്രസിഡണ്ട് ടി നസറുദ്ദീൻ ആവശ്യപ്പെട്ടു

കേരളത്തിൽ പണിമുടക്കുകൾ ഹർത്താലും ബന്ദു മായി രൂപപ്പെടുന്ന സാഹചര്യത്തിലാണ് കടകൾ തുറക്കാൻ വ്യാപാരിസമൂഹം നിർബന്ധിതമാകുന്ന തെന്നും അദ്ദേഹം പറഞ്ഞു

ആചാരങ്ങളെ നിലനിർത്തണമെന്നത് ഭക്തജനങ്ങളുടെ താത്പര്യമാണ് അത് സംരക്ഷിക്കാൻ ഗവൺമെന്റിന് ബാധൃത്യുണ്ടെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധൃമ ങ്ങളോട് പറഞ്ഞു

ആർ എസ് എസിനെ ശക്തിപ്പെടുത്തിയേ മുന്നോട്ടു പോകൂ എന്ന നില പാട് മുഖ്യ മന്ത്രി പിണ റായി വിജയൻ തിരുത്തണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു മതേതര മനസ്സിനെ ഭിന്നിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും അജണ്ടയ്ക്കനുസരിച്ച് ജനങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ലെന്ന് പ്രതിപക്ഷനേതാവ് പറഞ്ഞു ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതി വിധി ഉണ്ടായ ശേഷമേ ഓർഡിനൻസ് കൊണ്ടുവരുന്ന കാര്യ ത്തിൽ കേന്ദ്രഗവൺമെന്റ് നടപടിയുണ്ടാകൂ എന്ന് കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നൃൂഡൽഹിയിൽ പറഞ്ഞു

മുരളീധരൻ എം പി ഉൾപ്പെടെ നേതാക്കളുടെ വീടുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേ ധിച്ച് ബി

പിമാർ പാർലമെന്റ് വളപ്പിലെ ഗാന്ധിപ്രതിമയ്ക്ക് മുന്നിൽ നടത്തിയ ധർണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഇട തുഗവൺമെന്റാണ് അക്രമങ്ങൾക്കു പിന്നിലെന്ന് എം പി മാർ ആരോപിച്ചു

ഒരു ഭാഗത്ത് അക്രമവും മറുഭാഗത്ത് ഭരണവുമായി സി പി ഐ എം മുന്നോട്ട് പോകുന്നുവെന്നും കേരളത്തിൽ സി പി ഐ എം നടത്തുന്ന അക്രമത്തെക്കുറിച്ച് ബി ജെ പി ദേശീയ നേതൃത്വത്തെ അറിയിച്ചെന്നും അദ്ദേഹം കണ്ണൂരിൽ വൃക്തമാക്കി മനോനില തെറ്റിയവരെപ്പോലെയാണ് മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനും പെരുമാറുന്നതെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു രാഷ്ട്രീയപ്പാർട്ടികൾ വികസനത്തിന് ഊന്നൽ നൽക ണമെന്നും തിരഞ്ഞെടുപ്പുകാലത്ത് വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന രീതി അവസാനിപ്പിക്കണമെന്നും ഉപരാഷ്ട്ര പതി എം

ഇവ താൽക്കാ ലിക ലാഭം മാത്രം നൽകുന്നവയാണെന്നും വികസന മെന്ന ലക്ഷ്യത്തെ ഒരുതരത്തിലും സഹായിക്കുന്നവയ ല്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു പാർലമെന്റ് തുടർച്ചയായി സ്തംഭിക്കുന്ന അടുത്ത കാലത്തെ രീതിയിൽ വേദനയുണ്ടെന്നും ദേശീയ താൽപ രൃത്തിനുവേണ്ടി സ്ഥാർത്ഥ താൽപരൃങ്ങളെ ഒഴിവാക്കു ന്നതിൽ രാഷ്ട്രീയപാർട്ടികൾ പരാജയപ്പെടുകയാണെന്ന് ഉപരാഷ്ട്രപ്തി വിലയിരുത്തി

മകരജ്യോതി ദർശിക്കാൻ ഒരുക്കിയ സ്ഥല ങ്ങലിൽ പത്തനംതിട്ട ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റി പരിശോധന നടത്തി ഈ പ്രദേശങ്ങളിൽ അഗ്നിശ മനസേന പ്രത്യേക ജാഗ്രത പുലർത്തും കുടിവെള്ളം ലഭ്യമാക്കാൻ കൂടുതൽ വാട്ടർ കിയോസ്കുകൾ സ്ഥാപി ക്കും അടിയന്തര സാഹചര്യങ്ങളിൽ വൈദ്യസഹായം ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പ് ആംബുലൻസ് അടക്കം സൌകര്യങ്ങളും ഏർപ്പെടുത്തി

ലോക്സഭ ചേർന്നയുടൻ റഫേൽ ഇടപാട് ഉന്നയിച്ച് കോൺഗ്രസ് അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി ബഹളമാരംഭിച്ചു

സമാജ്വാദി പാർട്ടിയിലെയും ഇട തുപാർട്ടികളിലെയും ഏതാനും അംഗങ്ങളും ബഹള ത്തിൽ പങ്ക് ചേർന്നതോടെ സ്പീക്കർ സുമിത്രാമഹാ ജൻ സഭ ഉച്ചവരെ നിർത്തിവെയ്ക്കുകയായിരുന്നു രാജ്യസഭയിൽ സമാജ്വാദി പാർട്ടി പ്രസിഡണ്ട് അഖി ലേഷ് യാദവിനെതിരെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചതുൾപ്പെടെ ഗവൺമെന്റ് നടപടിയിൽ പ്രതി ഷേധിച്ചാണ് രാജ്യസഭയിൽ എസ് പി ബി എസ് പി അംഗങ്ങൾ ബഹളം വെച്ചത്

ചെന്നൈയിൽ ദേശീയ സീനിയർ വോളിബോളിൽ കാർട്ടർ മത്സരങ്ങൾ ഇന്ന് കേരളത്തിന്റെ പുരുഷ ടീം ആന്ധ്രയുമായും വനിതാ ടീം ഹരിയാനയുമായും ഏറ്റു മുട്ടും നാളെ റെയിൽവേസ് പഞ്ചാബിനെയും ഹരിയാന കർണാടകയെയും നേരിടും

ഷില്ലോങ്ങിലെ ഈസ്റ്റ് ജയ്ന്തിയ ഹിൽസിൽ അനധികൃ തമായി പ്രവർത്തിച്ചിരുന്ന ഖനിയിലാണ് അപകടം

ഗജ ചുഴലിക്കാ റ്റിനെ തുടർന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനം

ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്തിനാൽ ഉപതെരഞ്ഞെടുപ്പ് മാറ്റിവെ ക്കണമെന്ന് വിവിധ പാർട്ടികൾ നേരത്തെ ആവശ്യമുന്ന യിച്ചിരുന്നു

കാർ യാത്ര ക്കാരൻ നെടുമങ്ങാട് സ്വദേശി വരപ്രസാദ് ആണ് മരി ച്ചത്

കൊയിലാണ്ടി വിയൂരിൽ

കൊയിലേരി അതുലിന്റെ വീടിനു നേരെയാണ് ബോംബേറുണ്ടായത്

ഒരാഴ്ചത്തെ മേള പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസി ഡണ്ട് അന്നപൂർണ്ണദേവി ഉദ്ഘാടനം ചെയ്യും എറിക്സൺ ഇന്ത്യ നൽകിയ് കോടതിയലക്ഷ്യ ഹർജിയിൽ റിലയൻസ് ടെലികമ്മ്യൂണിക്കേഷൻ ലിമി റ്റഡ് ചെയർമാൻ അനിൽധീരുഭായി അംബാനിയ്ക്കെ തിരെ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു